രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ മഹാരാഷ്ട്രയിൽ മന്ത്രിസഭാ രൂപീകരണ ത്തിന് ബി ജെ പിയും ശിവസേനയും രംഗത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ നാരാ യൺ റാണെ മുംബൈയിൽ അറിയിച്ചു എന്നാൽ അതിന്റെ മാർഗ്ഗങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഗവൺമെന്റ് രൂപീകരണത്തിന് കോൺഗ്രസും എൻ സി പിയുമായി ചേർന്ന് ഫോർമുല തയ്യാറാക്കുമെന്ന് ശിവസേനാ അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ മുംബൈയിൽ പറഞ്ഞു ഗവൺമെന്റ് രൂപീകരണത്തിന് പിന്തുണ തേടി തിങ്കളാഴ്ച മാത്രമാണ് കോൺഗ്രസും എൻ സി പിയുമായി താൻ ഔപചാരിക ചർച്ച നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാ ക്കി ശിവസേനയും എൻ സി പിയും കോൺഗ്രസും ഒന്നിച്ചിരുന്ന് പൊതു മിനിമം പരിപാടി തയ്യാറാക്കുമെന്നും അതിനുശേഷം ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാ ശമുന്നയിക്കുമെന്നും ഉദ്ധവ് താക്കറെ പറഞ്ഞു അതിനിടെ ശിവസേനയുമായി ചേർന്ന് മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടില്ലെന്ന് എൻ സി പിയും കോൺഗ്രസും വൃക്തമാക്കി ഇക്കാ ര്യത്തിൽ തീരുമാനമെടുക്കുംമുമ്പ് എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടത് ആവശ്യമാണെന്ന് എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലും മുംബൈയിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയി ച്ചു ശിവസേനയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട നയങ്ങളും പദ്ധ തികളും സംബന്ധിച്ച് കോൺഗ്രസിനും എൻ സി പിയ്ക്കുമിടയിൽ ആദ്യം സമ വായം ഉണ്ടാകേണ്ടതുണ്ടെന്ന് അവർ പറഞ്ഞു അതിനുശേഷം ശിവസേനയുമായി ചർച്ച നടത്തുമെന്നും അവർ പറഞ്ഞു

വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനെതിരെ സുപ്രീം കോടതിയിൽ പുതിയ ഹർജി നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്ന് ശിവസേന അഭിഭാഷകൻ രാജേഷ് ഇനാംധാർ ന്യൂഡൽഹിയിൽ അറിയിച്ചു പിന്തു ണ കത്തിൽ ഹാജരാകാൻ ഗവർണർ മൂന്നു ദിവസം സമയം അനുവദിച്ചില്ലെന്ന് കാണിച്ച് ശിവസേന ഇന്നലെ സുപ്രീം കോട്ടതിയെ സമീപിച്ചിരുന്നു

മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ക്രൂരമായ തമാ ശയാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു കോൺഗ്രസിനെ മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിച്ചില്ലെന്ന് പാർട്ടി വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ന്യൂഡൽഹിയിൽ പറഞ്ഞു തിരക്കിട്ടാണ് രാഷ്ട്രപതി ഭരണത്തിന് തീരുമാനമെടുത്തതെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി

ജസ്റ്റിസ് രമണ അധ്യക്ഷനായ ബഞ്ചാണ് കേസിൽ വാദം കേട്ടത്

ഈ മണ്ഡ ലങ്ങളിൽ അടുത്ത മാസം അഞ്ചിന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യ ത്തിൽ സുപ്രീം കോടതി വിധി നിർണായകമാകും

സാധാരണക്കാരൻ ഓഫീ സിൽ എത്തുമ്പോൾ ബന്ധപ്പെട്ട കസേരയിൽ ആളില്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ ആവശ്യം മനസ്സിലാക്കി കാര്യം നിർവ്വഹിച്ചുകൊടുക്കുന്നത് കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു പൊതുജന സേവന രംഗത്തെ നൂതന ആശയാവിഷ്കാരത്തിന് മുഖ്യമന്ത്രിയുടെ അവാർഡ് തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹൃദ്യം ദേശീയ ആരോഗ്യ മിഷൻ ഔവർ റെസ്പോൺസബിലിറ്റി ടു ചിൽഡ്രൻ ജിയോ ടെക്സ്റ്റൈൽ ഫോർ കുറ്റ്യാടി ഇറി ഗേഷൻ പ്രോജക്ട് കനാൽ റെജുവനേഷൻ ഓഫ് കുട്ടമ്പേരൂർ റിവർ കൺസർവേ ഷൻ ഓഫ് വാട്ടർ റിസോഴ്സ് സമ്പൂർണ നെൽകൃഷി മയ്യിൽ ഗ്രാമപഞ്ചായത്ത് എന്നീ പദ്ധതികൾക്കാണ് അവാർഡ് ലഭിച്ചത് കിഫ്ബി സി എ ജി ഓഡിറ്റിനു വിധേയമാണെന്നും ഇതിനകം രണ്ടു തവണ ഓഡിറ്റ് നടന്നതായും മന്ത്രി ഡോ

എം തോമസ് ഐസക് വ്യക്തമാക്കി

പുതിയ കമ്പനി നിയമപ്രകാരം കിയാൽ സി എ ജി ഓഡിറ്റ് ബാധകമായ കമ്പനിയല്ലെന്നും മന്ത്രി അറിയിച്ചു കൊച്ചി നഗരത്തിലെ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാ ക്കണമെന്ന് ഹൈക്കോടതി നഗരസഭയ്ക്കും വിശാല കൊച്ചി വികസന അതോറി റ്റിക്കും നിർദ്ദേശം നൽകി വെള്ളിയാഴ്ചയ്ക്കകം റോഡുകൾ നന്നാക്കാൻ നടപടി യെടുത്തില്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരൂത്തുമെന്നും സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി പറഞ്ഞു സംസ്ഥാനത്ത് നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും സുഗമമാക്കു ന്നതിനും ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ്സിന്റെ ഭാഗമായി പഞ്ചായത്ത് വകുപ്പ് പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇതനുസരിച്ച് പഞ്ചായത്തുകളിൽ ഹെൽപ് ഡെസ്കുകൾ സ്ഥാപിക്കും സംരംഭം ആരംഭിക്കുന്നവർക്ക് മുഴുവൻ സഹാ യവും ഹെൽപ് ഡസ്കിൽ നിന്ന് നൽകണം ലൈസൻസ് അപേക്ഷ പഞ്ചായത്ത് ഭരണ സമിതിക്ക് നിരസിക്കാനാകില്ലെന്നും ഇക്കാര്യത്തിൽ പഞ്ചായത്ത് സെക്ര ട്ടറി മാർഗ്ഗ നിർദ്ദേശം നൽകണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി

കേന്ദ്രഗവൺമെന്റ് ധവളപത്രം ഇറക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു കണ്ണൂരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഹെഡ് ന്ന പോസ്റ്റോഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി ഗവൺ മെന്റ് ഒന്നും ചെയ്യുന്നില്ലെന്നും ദേശീയ തലത്തിൽ കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭ സമരത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ സമരം നടത്തുന്നതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

എതിർപ്പ് പ്രകടിക്കുന്നത് എന്തിനാണെന്ന് ബി ജെ പി ദേശീയ നിർവഹാക സമിതിയംഗം പി കെ കൃഷ്ണദാസ് ചോദിച്ചു മുസ്ലീം ലീഗ് മതസംഘടന പോലെയാണ് പെരുമാറുന്നതെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസ് മൌനം വെടിഞ്ഞ് നിലപാട് വൃക്തമാക്ക ണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു

ടൂർണ്ണമെന്റിൽ കേരളത്തിന്റെ രണ്ടാം ജയമാണ് ഇത് കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിത്തിൽ നടക്കുന്ന ദക്ഷിണേന്ത്യാ അന്തർസർവകലാശാല വനിതാ ഹാന്റ് ബാൾ ചാംപ്യൻഷിപ്പിൽ കാലിക്കറ്റ് എം ജി കേരള സർവകലാശാലകൾ ഇന്ന് കാർട്ടറിൽ കളിക്കും കേരള സർവകലാശാല നിലവിലെ മൂന്നാം സ്ഥാനക്കാരായ മൈസൂർ സർവകലാശാലയേയും കാലിക്കറ്റ് പുതുച്ചേരിയേയും എംജി നിലവിലെ ജേതാക്കളായ അണ്ണ സർവകലാശാലയേയും നേരിടും

് വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂൾ ജേതാക്കളായി

സംഗീതോൽസവം ഇന്ന് സമാപിക്കും നാളെ മുതൽ കല്പാത്തിയിൽ രഥപ്രയാണം ആരംഭിക്കും ശനിയാഴ്ചയാണ് ദേവരഥ സംഗമം

ലോക്ഹാർട്ട് ഗ്യാപ്പ് ഭാഗത്ത് കോഴിക്കോട് എൻ ഐ ടിയിലെ പിദഗ്ദ്ധസംഘം ഇന്ന് പരിശോധന നടത്തും ദേശീയപാതയുടെ നവീകരണത്തിനായി ഗ്യാപ്പിൽ പാറ പൊട്ടിക്കുന്ന പണികൾ നടക്കുന്ന തിനിടെയാണ് മണ്ണിടിച്ചിലിൽ ഗതാഗതം പൂർണമായി തടസ്സപ്പെട്ടത് ഇവർ ഗവൺമെന്റിന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ ജോലികൾ നടക്കുക

പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തു മെന്ന് ദക്ഷിണറെയിൽവെ ചീഫ് ഓപ്പറേഷൻസ് മാനേജർ എസ് അനന്തരാമൻ എം

രാഘവൻ എം പിക്ക് ഉറപ്പുനൽകി മെമു സർവീസ് ഉടൻ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും എം പിയുമായി കോഴിക്കോട് നടത്തിയ കൂടിക്കാഴ്ച യിൽ അദ്ദേഹം അറിയിച്ചു

പിൻവലിച്ചു ജില്ലയിലെ ഒൻപത് പൊലീസ് സ്റ്റേഷൻ പരിധികളിലാണ് അയോധ്യ വിധിയെ തുടർന്ന് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജില്ലാ പൊലീസ് മേധാവി നിരോധനാജ്ഞ ഏർപ്പെടുത്തിയത്

മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് ജില്ലാ കലക്ടറായി ചുമതലയേറ്റ ഡോക്ടർ അദീല അബ്ദുള്ള പറഞ്ഞു

സംസ്കാരം മറ്റന്നാൾ കോട്ടയം പുത്തൻപള്ളി സെമിത്തേരിയിൽ നടക്കും ഇന്നലെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ വാർദ്ധകൃ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം

മദ്രാസ് ഐ ഐ ടി വിദ്യാർഥിനി ഫാത്തിമ ലത്തീഫിന്റെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് എടുക്കണമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ആവശ്യപ്പെട്ടു ഇന്റേണൽ മാർക്ക് കുറഞ്ഞതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് കണ്ടെത്തിയ ഐ ഐ ടിര്നിലപാട് സംശയാ സ്പദമാണെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു അതേസമയം മകൾ ഫാത്തിമയുടെ ദുരൂഹ മരണത്തിൽ സത്യസന്ധമായ അന്വേഷണം ഉറപ്പാക്കുന്നതിന് തമിഴ്നാട് ഗവൺമെന്റ് തലത്തിൽ ഇടപെടണമെന്ന് അഭ്യർഥിച്ച് പിതാവ് ലത്തീഫും ബന്ധുക്കളും മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകി

പുതുപ്പറമ്പ് പൊട്ടി യിൽ വീട്ടിൽ ഷാഹിർ മരിച്ച കേസിൽ കൊലപാതക ശ്രമത്തിനും ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനുമാണ് കേസ്

കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും കേസിൽ റിമാൻഡിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യചെയ്യലിനുമായാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്

കേസിൽ ഇന്നലെ അന്വേഷണ സംഘം ജയിലിലെത്തി ജോളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു

ണ്ഡലം കുട്ടൻ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവരെ തെരഞ്ഞെടുത്തു ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം